ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ പാതിരാ കുർബാനയും ദിവ്യബലിയും നടന്നു

അധ്യയന വർഷത്തെ എസ് എസ് എൽ

തങ്കഅങ്കി രഥ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തും

ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്നേഹസന്ദേശവുമായി ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ദിവ്യബലിയും അടക്കം ചടങ്ങുകൾ നടന്നു കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു ദേവാലയങ്ങളിലെ പരിപാടികൾ

സൂസെപാക്യം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ക്രിസ്മസ് തിരുപ്പിറവി ദിവ്യബലിയ്ക്ക് രൂപതാ ബിഷപ്പ് ഡോ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായി കൊച്ചിയിൽ മേജർ ആർച്ച് ബിഷപ് മാർ ജോർജ്ജ് ആലഞ്ചേരിയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രുമ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളീയർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു ഭൂമിയിൽ സമാധാനം എന്ന മഹത്തായ സന്ദേശത്തിലൂടെ നൽകുന്നത് അനുകമ്പയുടെയും ക്ഷമാശീലത്തിന്റെയും സ്നേഹത്തിന്റെയും ശാശ്വത ചൈതന്യമാണെന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു ലോകത്തിനാകെ രക്ഷയുടെയും വിടുതലിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഹൃദ്യമായ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നു കോവിഡ് വാക്സിന്റെ രൂപത്തിൽ പ്രത്യാശയുടെ നക്ഷത്രം പുതിയ അകലെയല്ലെന്ന സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രും കർഷകർക്ക് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അടുത്ത ഗഡു വിതരണം ഇന്ന്

ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപയാണ് കിസാൻ സമ്മാൻ പദ്ധതിയിൽ കർഷകർക്ക് നൽകുന്നത് ചടങ്ങിൽ ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരുമായി പ്രധാനമന്ത്രി സംവദിക്കും കർഷക ക്ഷേമത്തിനായി ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ കർഷകർ പ്രധാനമന്ത്രിയുമായി പങ്കുവെയ്ക്കും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ചടങ്ങിൽ പങ്കെടുക്കും

രുമ ഇന്ത്യയും മധ്യ ആഫ്രിക്കൻ രാജ്യമായ ഗാബോണും കോവിഡാനന്തര സഹകരണവും ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഉഭയകക്ഷി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി വി മുരളീധരനും ഗാബോൺ വിദേശകാര്യ മന്ത്രിയും തമ്മിലായിരുന്നു വിഡിയോ കോൺഫറൻസ് വഴി ചർച്ചു രുര കേരളത്തിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചത് ജനങ്ങളിൽ പ്രത്യാശ ഉളവാക്കിയതായി വിനോദ സഞ്ചാര വകുപ്പ് ഡയറക്ടർ പി ബാലകിരൺ ആകാശവാണിയോട്

കുട്ടികൾക്ക് ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാനും ഉത്തരമെഴുതാനും അധിക ചോദ്യങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കും

രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് രുര കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ പരാതികളും നിവേദനങ്ങളും പരിഗണിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസരം അനുവദിച്ചതായി മിസോറാം ഗവർണർ പി

ആദ്യം ഓർത്തഡോക്സ് യാക്കോബായ സഭാ നേതൃത്വവുമായി പ്രത്യേക ചർച്ച നടത്തും ജനുവരിയിൽ സിറോ മലബാർ സഭാ പ്രതിനിധികൾക്കും കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് കൊച്ചിയിൽ സഭാ നേതൃത്വങ്ങൾ അവരുടെ വിഷമതകൾ അറിയിച്ചപ്പോഴാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുകയും ചെയ്തതെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞു രംഭ ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കഅങ്കിയുമായി രഥഘോഷയാത്ര ഉച്ചയ്ക്ക് പമ്പയിലെത്തും

നാളെയാണ് മണ്ഡലപൂജ രുര ഗവൺമെന്റ് ഇന്നലെ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടി തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ ഓണക്കാലത്ത് നൂറുദിന കർമ്മപരിപാടി പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രി അതേ തന്ത്രവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി

കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എൻ സ്മാരകത്തിലാണ് യോഗം ദ്ദേ സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ കണ്ണൂർ ബാലഭവൻ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പിണറായി പുത്തൻകണ്ടത്തെ ചടങ്ങിൽ മന്ത്രി കെ കെ ശൈലജ മുഖ്യാതിഥിയായി പങ്കെടുക്കും

ടി അബ്ദുള്ളക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട്ട് ഇടതുമുന്നണി പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് നിർഭാഗ്യകരവും ഖേദകരവുമാണെന്ന് അദ്ദേഹം വിലയിരുത്തി

പല വിഷയങ്ങളിലും പാഠത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതുവരെ ഓൺലൈൻ ക്ലാസുകൾ വഴി പൂർത്തീകരിച്ചതെന്ന് അവർ പറഞ്ഞു

രംഭ കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ക്ഷേത്രങ്ങളിലെ കലാ പരിപാടികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് തപസ്യ കലാസാഹിത്യവേദി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഉത്സവങ്ങൾ ആചാരപരമായി മാത്രം നടത്തുമ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്ര ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്ന് തപസ്യ കോഴിക്കോട്ട് അറിയിച്ചു രുര നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും കൊച്ചി വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത നടപടിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നാലാഴ്ചക്കകം സമർപ്പിക്കാൻ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി

പെരുകാവ് സ്വദേശി വിഷ്ണുദേവ് വലിയശാല സ്വദേശി അനന്തൻ എന്നിവരാണ് പെരുകാവ് ശാസ്താ ക്ഷേത്രത്തിന് സമീപം പുഴയിൽ മുങ്ങി മരിച്ചത്

ഏഴുവയസ്സുകാരി അലീഷയാണ് ഇന്നലെ വൈകീട്ട് കുളിക്കാൻ പോയപ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീണത്